പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒഡീഷയിലും ബ്രീഹാറിലും ഇന്ന് തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കും

കൂടുതൽ വിവരങ്ങളുമായി സോഫിയ

ഷാജഹാൻപൂർഖീരി ഖർദോയി മിഷിരിക്ക് ഉന്നാവോ ഫറൂക്കാബാദ് കനൌജ് ഇറ്റാവ മണ്ഡലങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു സമാജ് വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവിന്റെ പത്നി കനൌജിൽ നിന്നും മുതിർന്ന ബി

നേതാക്കളായ രാംശങ്കർ പത്തേരിയ ഇട്ടാവയിൽ നിന്നും സാക്ഷി മഹാരാജ് ഉന്നവോയിൽ നിന്നും മത്സരിക്കും ത്ധാർഖണ്ഡിൽ നാലം ഘട്ടത്തിൽ മൂന്ന് സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ്

പ്രധാന്യമിന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഒഡീഷയിലെ ഭവാനി പട്നയിലുട് ബീഹാറിലെ ജമുയിലും ഗയയിലും തെരഞ്ഞെടുപ്പ് റാലികള്ള അഭിസംബോധന ചെയ്യും

അധ്യക്ഷൻ ലാലു പ്രസദ് യാദവിന്റെ മകൻ തേജ് പ്രതാപ് രംഗത്തെത്തി ലാലു റാബ്രി മോർച്ച എന്ന പേരിൽ പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന് തേജ് പ്രതാപ് യാദവ് അറിയിച്ചു താൻ മുന്നോട്ടുവച്ച രണ്ട് സ്ഥാനാർത്ഥികൾക്ക് മത്സരിക്കാൻ അവസരം നൽകാത്തതിൽ ആർ

സരൺ മണ്ഡലത്തിൽ ആർ

പ്രതിനിധി ചന്ദ്രിക റായിക്കെതിരെ മത്സരിക്കുമെന്നും തേജ് പ്രതാപ് അറിയിച്ചു

മറ്റുന്നാൾ വയനാട്ടിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും രാ്ഹുലിന്റെ പ്രചരണത്തിനായി മുതിർന്ന നേതാക്കളും ജില്ലയിലെത്തും അതേസമയം എൻ

എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി നാളെ നാമനിർദ്ദേശപത്രിക സമർപ്പിക്കും

രാഹുലിന്റെ വരവിനു മുന്നോടിയായി എസ്

ജി സംഘം വയനാട്ടിൽ സുരക്ഷാപരിശോധനകൾ നടത്തി

തെരഞ്ഞെടുപ്പ് പെരുമാറ്റചട്ടം നിലവിൽ വന്ന ദിവസം മുതൽ നടത്തിയ റെയ്ഡിന്റെ കണക്കുകളാണ് പുറത്തുവിട്ടത്

തമിഴ്നാടും ആന്ധ്രാപ്രദേശും രണ്ടും മൂന്നും സ്ഥാനങ്ങളിലുണ്ട്

ഉദ്യോഗസ്ഥൻ അനുരാഗ് ഗുപ്തയെ സ്ഥലം മാറ്റാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടു വോട്ടെടുപ്പ് പ്രക്രിയയിൽ ഇടപെടാൻ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തതിന് കഴിഞ്ഞ വർഷമാണ് അനുരാഗ് ഗുപ്തയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് നിലവിൽ സ്പെഷ്യൽ ബ്രാഞ്ച് എ ഡി ജി പദവിയിലിരിക്കുന്ന അനുരാഗ് ഗുപ്ത തെരഞ്ഞെടുപ്പ് നടത്തിപ്പിലെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലയാണ് വഹിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഝാർഖണ്ഡ് മുഖ്യതെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നോട്ടീസയച്ചു

ഈ മാസം നാലാണ് നാമനിർദ്ദേശപത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി

ഇത്തരം പരാമർശങ്ങൾ വിഘടനപരമായ ഉദ്ദേശ്യത്തോടെയാണെന്ന് അദ്ദേഹം ഫെയ്സ്ബുക്കിലൂടെ അറിയിച്ചു ഇത്തരം നടപടികളെ പിന്തുണയ്ക്കാൻ നവഇന്ത്യ ഒരു ഗവൺമെന്റിനെയും അനുവദിക്കില്ലെന്നും ശ്രീ അരുൺ ജെയ്റ്റ്ലി അഭിപ്രായപ്പെട്ടു

ഡൽഹി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ചന്ദർശേഖറായിരിക്കും ട്രൈബ്യൂണൽ അധ്യക്ഷനെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രാലയം പുറത്തിറക്കിയ അറിയിപ്പിൽ പറയുന്നു

ഈ രണ്ട് സംഘടനകളെയും നേരത്തെ നിയമവിരുദ്ധ സംഘടനകളായി കേന്ദ്രഗവൺമെന്റ് പ്രഖ്യാപിച്ചിരുന്നു

തദ്ദേശവാസിയായ ഒരു പെൺകുട്ടിയും മരിച്ചു

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ചിലി പ്രസിഡന്റുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത് സാന്റിയാഗോയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിഡന്റിന്റെ കൊട്ടാരത്തിലായിരുന്നു കൂടിക്കാഴ്ച സാമ്പത്തിക മേഖലയിലെ സഹകരണം ശക്തിപ്പെടുത്താൻ ഇരുരാജ്യങ്ങളും പ്രിതിജ്ഞാബദ്ധമാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു ഖനനം ദ്രിപ്പുഴംഗരുടെ ശാക്തീകരണം എന്നീ മേഖലകളിലെ മൂന്ന് ധാർണാപത്രങ്ങളിൽ ഇന്ത്യയും ചിലിയും ഒപ്പുവച്ചു ലാറ്റിൻ ് അമേരിക്കൻ മേഖലയിൽ നിന്ന് ഇന്ത്യയുമായി വ്യാപാരബ്സ്ം പുലർത്തുന്നതിൽ ചിലിക്ക് ആറാം സ്ഥാനമാണ്

ഈ ആറ് ജില്ലകളിലെയും നിലവിലെ ക്രമസമാധാന സാഹചര്യങ്ങൾ പരിഗണിച്ചാണ് തീരുമാനമെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ അറിയിപ്പിൽ പറയുന്നു

ബ്രിഹൻ മുംബൈ മുൻസിപ്പൽ കോർപ്പറേഷന്റെ കീഴിൽ പാലങ്ങൾ സംബന്ധിച്ച വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പിൽ ജോലി ചെയ്തിരുന്ന എസ് എഫ് കക്കുൾട്ടെയെയാണ് ഇന്നലെ രാത്രി ആസാദ് മെയ്ഡൻ പോലീസ് ചോദ്യം ചെയ്യലിന്റ് ശേഷം അറസ്റ്റ് ചെയ്തത് കേസുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ അറസ്റ്റാണിത് നേരത്തെ നിർമ്മാണ ഓഡിറ്റർ നീരജ് കൂമാർ ദേശായിയെ പാലത്തിന്റെ ഉപയോഗക്ഷമത വ്യക്തമായി ്പരിശോധിക്കാതെ ക്ലിയറൻസ് നൽകിയതിന് അറസ്റ്റ് ചെയ്തിരുന്നു

എയർമാർഷൽ ജെ

ന്യൂക്ലിയർ കമാൻഡ് അതോറിറ്റിക്ക് പ്രവർത്തനമേഖലയിൽ വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയാണ് എസ്

സി എന്ന തന്ത്രപ്രധാന സൈനിക വിഭാഗത്തിന്റെ ചുമതല

ഇതിൽ ബ്രിക്സ് രാജ്യങ്ങളുടെ സഹകരണം ആണവ വിതരണ ഗ്രൂപ്പ് എൻ

ജയ്പൂരിലാണ് മത്സരം തുടർച്ചയായി മൂന്ന് മത്സരങ്ങളിൽ പരാജയപ്പെട്ട ബാംഗ്ളൂരിന് ഇന്നത്തെ മത്സരം അഭിമാന പോരാട്ടമാകും